പ്രചാരണ പ്രവർത്തനങ്ങൾ ഇന്ന് മുതൽ സജീവമാകും

വാർത്തകൾ വിശദമായി രാജ്യത്തെ കോവിഡ് സാഹചര്യവും വാക്സിൻ വിതരണവും ഉൾപ്പെടെ വിഷയങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായി ചർച്ച ചെയ്യും വീഡിയോ കോൺഫറൻസിങ്ങ് വഴി നടത്തുന്ന ചർച്ചയിൽ ഓരോ സംസ്ഥാനത്തേയും കോവിഡ് പ്രതിരോധ നടപടികളും വാക്സിൻ വിതരണത്തിന് തയാറാക്കിയ മാർഗരേഖയും പ്രധാനമന്ത്രി വിലയിരുത്തും കോവിഡ് വ്യാപനം രൂക്ഷമായ കേരളമടക്കം എട്ട് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി ആദ്യം ചർച്ച നടത്തിയ ശേഷമായിരിക്കും മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി ചർച്ച നടത്തുക കേന്ദ്രഭരണ ക്രദേശങ്ങളിലെ സാഹചര്യവും പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസ് വഴി വിലയിരുത്തും

രും ന്യൂഡൽഹിയിൽ സഞ്ചരിക്കുന്ന കോവിഡ് പരിശോധനാ ലാബ് കേന്ദ്രമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു

ഇത്തരം കൂടുതൽ മൊബൈൽ ലാബുകൾ സജ്ജമാക്കുമെന്ന് അമിത്ഷാ അറിയിച്ചു ആറ് മുതൽ എട്ട് വരെ മണിക്കൂറുകൊണ്ട് ലാബിലെ പരിശോധനാ ഫലം ലഭ്യമാകും

നൂറാം വാർഷിക സ്മരണികാ നാണയവും തപാൽ വകുപ്പ് പുറത്തിറക്കുന്ന പ്രത്യേക സ്മരണികാ സ്റ്റാമ്പും തപാൽ കവറും പ്രധാനമന്ത്രി പ്രകാശനം ചെയ്യും രും അസം മുൻ മുഖ്യമന്ത്രി തരുൺ ഗൊഗോയിയുടെ വിയോഗത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചിച്ചു ഉന്നത നിലവാരം പുലർത്തിയ രാഷ്ട്രീയ പ്രവർത്തകനും സംഘാടകനുമായിരുന്നു തരുൺ ഗൊഗോയിയെന്ന് രാഷ്ട്രപതി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു നീണ്ട കാലത്തെ ഭരണ പരിചയവും രാഷ്ട്രീയ പാരമ്പര്യവും ഉണ്ടായിരുന്ന നേതാവായിരുന്നു തരുൺ ഗൊഗോയിയെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവരും അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചു

മത്സരചിത്രം വ്യക്തമായതോടെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഇന്നു മുതൽ സജീവമാകും

രും ബിജെപി ന്യൂനപക്ഷ വിരുദ്ധമാണെന്ന നുണ പ്രചാരണങ്ങളുടെ കാലം കഴിഞ്ഞെന്ന് പാർട്ടി ദേശീയ ഉപാധ്യക്ഷൻ എ

വണ്ടൂരിൽ എൻഡിഎ സ്ഥാനാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രുര നിയമസഭയിൽ വെയ്ക്കാത്ത സിഎജി റിപ്പോർട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിനെതിരെ എം സ്വരാജ് എംഎൽഎ സ്പീക്കർക്ക് പരാതി നൽകി

ഡി നടപടി നിയമസഭയുടെ അവകാശ ലംഘനമാണെന്ന് അദ്ദേഹം പറഞ്ഞു അന്വേഷണ ഏജൻസിയെ ഉപയോഗിച്ച് രാഷ്ട്രീയ പകപോക്കൽ നടത്തുകയാണെന്നും സ്വരാജ് കൊച്ചിയിൽ പറഞ്ഞു

ഇന്ന് ജംഷദ്പൂർ എഫ്സി വൈകീട്ട് ഏഴരക്ക് ചെന്നൈയിൻ എഫ്സിയെ നേരിടും രുദ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട നിവാർ ചുഴലിക്കാറ്റ് വടക്ക് പടിഞ്ഞാറൻ ദിശയിലേക്ക് നീങ്ങി നാളെ ഉച്ചയോടെ തമിഴ്നാട് പുതുച്ചേരി സംസ്ഥാനങ്ങളിലെ കാരക്കലിനും മഹാബലിപുരത്തിനുമിടയിൽ തീരം കടക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി

കാറ്റിന് മുന്നോടിയായി ഇന്ന് ശക്തമായ മഴക്കും സാധ്യതയുണ്ട് കേന്ദ്ര ദുരന്ത നിവാരണ സേനയുടെ ആറ് സംഘങ്ങൾ തമിഴ്നാട്ടിൽ എത്തിയിട്ടുണ്ട് രുര കേരള പൊലീസ് നിയമ ഭേദഗതി ചോദ്യം ചെയ്ത് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആർഎസ്പി നേതാക്കളായ എൻ

പ്രേമചന്ദ്രൻ ഷിബു ബേബിജോൺ എന്നിവർ നൽകിയ ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചേക്കും അതേസമയം നിയമം ഇതേരൂപത്തിൽ ഗവൺമെന്റ് നടപ്പാക്കില്ലെന്നും പുനപരിശോധന നടത്തുമെന്നും അറയിച്ച് സീനിയർ ഗവൺമെന്റ് പ്ലീഡർ കോടതിയിൽ മറ്റൊരു ഹർജി നൽകിയിട്ടുണ്ട് രും പാലാരിവട്ടം പാലം അഴിമതി കേസിൽ റിമാന്റിൽ കഴിയുന്ന മുൻമന്ത്രി വി

ഇബ്രാഹിംകുഞ്ഞിന്റെ ആരോഗ്യ പരിശോധനാ റിപ്പോർട്ട് മെഡിക്കൽ ബോർഡ് ഇന്ന് കോടതിയിൽ സമർപ്പിക്കും മൂവ്വാറ്റുപുഴയിലെ പ്രത്യേക വിജിലൻസ് കോടതിയാണ് അഞ്ചംഗ മെഡിക്കൽ ബോർഡിനെ ഇതിനായി നിയോഗിച്ചത് വിജിലൻസിന്റെ കസ്റ്റഡി അപേക്ഷയും ഇബ്രാഹിംകുഞ്ഞിന്റെ ജാമ്യാപേക്ഷയും ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കോടതി പരിഗണിക്കുന്നത് രും തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ അറസ്റ്റ് കസ്റ്റംസ് ഇന്ന് രേഖപ്പെടുത്തിയേക്കും ശിവശങ്കറിനെതിരെ വ്യക്തമായ തെളിവുണ്ടെന്ന് കാണിച്ച് ഇന്നലെ കസ്റ്റംസ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു ഹർജി പരിഗണിച്ച കോടതി അറസ്റ്റിന് അനുമതി നൽകുകയായിരുന്നു രുഭ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അറസ്റ്റിലായ ബിനീഷ് കോടിയേരിയുടെ ജാമ്യാപേക്ഷ ബെങ്കളൂരു പ്രത്യേക കോടതി ഇന്ന് പരിഗണിക്കും

കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും രുര നടിയെ ആക്രമിച്ച കേസിൽ കെ

ഗണേഷ് കുമാർ എംഎൽഎയുടെ ഓഫീസ് സെക്രട്ടറി പ്രദീപ് കുമാറിനെ പുലർച്ചെ അറസ്റ്റ് ചെയ്തു ബേക്കൽ പൊലീസ് പത്തനാപുരത്തെത്തിയാണ് പ്രദീപിനെ അറസ്റ്റ് ചെയ്തത് നടിയെ ആക്രമിച്ച കേസിലെ മാപ്പു സാക്ഷിയെ മൊഴിമാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രദീപ് കുമാർ ഭീഷണിപ്പെടുത്തിയെന്നാണ് കേസ്

രുഭ ശബരിമല തീർത്ഥാടനം നല്ല രീതിയിൽ പുരോഗമിക്കുന്നതായി സന്നിധാനത്ത് ചേർന്ന ഉന്നതതല സമിതി യോഗം വിലയിരുത്തി കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്തുന്ന തീർത്ഥാടനം തൃപ്തികരമാണെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ തീർത്ഥാടകർ എത്തിയാൽ ദർശനം ഒരുക്കാൻ പൂർണ സജ്ജമാണെന്നും യോഗത്തിൽ ശബരിമല എഡിഎം അരുൺ